സാധാരണക്കാർക്കായി ഒൻപത് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാസീതാരാമൻ എല്ലാ മേഖലയിലും മിനിമം കൂലി ഉറപ്പാക്കും

എം

എസ്

റേഷൻ കാർഡ് ഇല്ലാത്ത കുടിയേറ്റ തൊഴിലാളി കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം അഞ്ച് കിലോ അരിയോ ഗോതമ്പോ നൽകും

ഇത് തൊഴിലവസരം വർദ്ധിപ്പിക്കും

കോവിഡ് അവലോകനയോഗത്തിനു ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചതാണ് ഇത്

മൂന്ന് പേരുടെ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്

എം

കൂടുതൽ വിവരങ്ങളുമായി നിർന്ദ്രമോഹൻ

എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ഐ ആറും സംയുക്തമായി ശ്രമിച്ച് വരികയാണെന്ന് കേന്ദ്രമന്ത്രി ശ്രീ പദ് നായിക്

നാളെ വെളുപ്പിന് ട്രെയിൻ തിരുവനന്തപുരത്തെത്തും

ട്രെയിനിൽ എത്തുന്ന തമിഴ്നാട് സ്വദേശികളെ അവിടെനിന്നുള്ള പ്രത്യേക ബസുകളിൽ അങ്ങോട്ട് അയക്കും

സമൂദ്രസേതു ദൌത്യത്തിന്റെ ഭാഗമായുള്ള ജലാശ്ചയുടെ രണ്ടാം യാത്രയാണ് ഇത്

വോയിസ് ഐ സി എം ആറും നാഷ്ടണിൽ എയിഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമാകും ഇന്ത്യയിൽ പ്പരീക്ഷണ കാര്യങ്ങളിൽ ഏർപ്പെടുകയെന്ന് ആരോഗ്യ രൂപ്പേഷണ വകുപ്പ് സെക്രട്ടറിയും ഐ സി എം ആർ ഡയ്യറിക്ടർ ജനറലുമായ ഡോ ബൽറാം ഭാർഗവ പറഞ്ഞു

അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പരീക്ഷണത്തിൽ നാല് ചികിത്സ സാധൃതകളുടെ ഫലപ്രാപ്തിയാണ് വിലയിരുത്തുന്നത്

രാജ്യത്ത് ഒമ്പതിടങ്ങളിലാണ് പരീക്ഷണം നടക്കുകയെന്നും ഇൌയിടങ്ങളിൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയെന്നും നാഷണൽ എയിഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ശാസ്ത്രജ്ഞ ഷീല പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് ലക്ഷണങ്ങളെത്തുടർന്ന് ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ ടിക്കറ്റ് തുകയും മുഴുവനായി മടക്കി നൽകും

പ്രത്യേക ട്രെയിനുകൾക്കാണ് ഇത്ത് പ്രബാധകം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ട്രെയിനുകൾക്കു പുറമേ ഭാവിയിൽ ആരംഭിക്കുന്ന ട്രെയിനുകൾക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബാധകമാണെന്ന് റെയിൽവേ അറിയിച്ചു

എം